സുസ്ഥിര വികസന പ്പ്ധതികൾക്കായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും യു

തീവ്ര മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധൃതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കേരളം അതീവ ജാഗ്രതയിൽ

ഇന്തൃയും ഖസാകിസ്ഥാനും സൈനിക സഹകരണം ശക്തിപ്പെടുത്തും

പ്രതിരോധ സഹകരണമുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇരു രാജൃങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും

പിന്നീട് പ്രസിഡന്റ് പൂടിൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ റഷ്യ വ്യാവസായിക ഫോറത്തിലും റഷ്യൻ പ്രസിഡന്റ് സംബന്ധിക്കും ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെയാണ് വ്ളാഡിമർ പുടിൻ ഇന്ത്യയിലെത്തിയത്

ഗ്രേറ്റർ നോയ്ഡയിൽ പുനരുപയോഗ സാധ്യമായ ഊർജ്ജ സംരംഭക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന രണ്ടാമത് പ്രതിനിധി കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഡൽഹി പ്രഖ്യാപനം അംഗികരിച്ചതെന്ന് ഔദ്യോഗിക വാർത്താ കുറിപ്പിൽ അറിയിച്ചു അന്താരാഷ്ട്ര സൌരസഖ്യ അംഗങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖല കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്നിവർ കൂട്ടായി പ്രവർത്തിക്കാനും പ്രഖ്യാപനം ലക്ഷ്യമിടുന്നു

ജെ

അദ്ധ്യക്ഷൻ അമിത് ഷായും ഉത്ഖണ്ഠാകുലരാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വന്തം ഭാവിയെക്കുറിച്ചാണ് ആശങ്കയെന്ന് ബിഹാറിലെ ഗോപാൽ ഗഞ്ചിലെ ഒരു യോഗത്തിൽ സംസാരിക്കവെ ശ്രീമതി ഇറാനി പറഞ്ഞു അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ താൻ പ്രധാനമന്ത്രി ആകുമെന്ന് രാഹുൽ ഗാന്ധി സ്വപ്നം കാണുന്നതായും സ്മൃതി ഇറാനി പറഞ്ഞു സ്വന്തം ഭാവിയിൽ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ലെന്നും അവർ കുറ്റപ്പെടുത്തി രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി ഗവൺമെന്റ് റാബി വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചതായും ശ്രീമതി ഇറാനി പറഞ്ഞു

മുദ്ര ഉജ്ജ്വല യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി

എഥനോളിന്റെ ഉല്പാദനം വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇന്ധനങ്ങളുടെ ഇറക്കുമതി സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും രാജ്യത്തിന് പെട്രോളിയം മേഖലയ്ക്ക് വൻ സാധ്യതകളാണ് ഉള്ളതെന്നും ശ്രീ

മെഥനോൾ ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നതിനുള്ള പുതിയ സംരംഭങ്ങൾ മുംബൈ പൂനൈ ഗുവാഹത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായും കേന്ദ്ര മന്ത്രി പറഞ്ഞു

ഇന്ധനവില കുറച്ചതിന് പ്രധാനമന്ത്രിയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം ട്വീറ്റർ സന്ദേശത്തിലൂടെ അറിയിച്ചു

നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം നിർവഹിക്കും ശാസ്ത്ര അദ്ധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒട്ടേറെ ശാസ്ത്രജ്ഞർ മേളയിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ

ശാസ്ത്രം മാറ്റത്തിന് എന്നുതാണ്ഈ വർഷത്തെ ശാസ്ത്രമേളയുടെ പ്രമേയം മുഖ്യ ആഘോഷങ്ങൾ ലക്നൌവിന്റെ പല ഭാഗങ്ങളിലും നടക്കും

വിശദവിവരങ്ങളുമായി സീനാ ആന്റണി

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ന്യൂനമർദ്ദം ഇന്ന് ലക്ഷദ്വീപിനു സമീപം എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തമിഴ് നാട്ടിലും ജാഗ്രതാ നിർദ്ദേശം നൽകി എല്ലാ ജലസംഭരണികളിലേയും ജലനിരപ്പ് വിലയിരുത്താൻ ദുരന്തനിവാരണ അതോറിട്ടി നിർദ്ദേശം നൽകി

തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയേറി ഇവ ക്രമമായി തുറന്നു വിടാൻ കേന്ദ്ര ജല കമ്മിഷനോട് അഭ്യർത്ഥിക്കും കനത്ത മഴയ്ക്ക് കാരണമാകുന്ന ന്യൂനമർദ്ദം അറേബ്യൻ സമുദ്രത്തിൽ ഇന്നോടെ രൂപപ്പെടുമെന്ന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു

സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ഫിഷറീസ് വകുപ്പ് നിർദ്ദേശം നൽകി കൂടുതൽ മഴവെള്ളം ഉൾകൊള്ളാവുന്ന വിധം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി തുടങ്ങി ഇന്നലെ മലമ്പുഴ പോത്തുണ്ടി മംഗലം ഡാമുകൾ തുറന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എൻ പരിസ്ഥിതിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിവച്ചു ഐകൃരാഷ്ട്ര സഭയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എറിക് സോൽഹേയ്മും സി

യുടെ ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജിയുമാണ് ഇന്നലെ ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പു വച്ചത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം വിഭവങ്ങളുടെ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പു വരുത്തുകയാണ് ഉടമ്പടിയിലൂടെ ലക്ഷ്യമിടുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ധാരണയായിട്ടുണ്ട്

മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു

ഖസാക്കിസ്ഥാൻ ബഹിരാകാശ പ്രതിരോധ വകുപ്പ് മന്ത്രി ബെയ്ബട്ട് അതംകുലോവിനെ ശ്രീമതി

പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു

പ്രാദേശിക വികസന പദ്ധതികളെ കുറിച്ച് ശ്രീമതി

ഇത്തരം കൂട്ടായ പ്രവർത്തനം ഇരു രാജ്യങ്ങളിലെയും തീരസംരക്ഷകരുടെ സൌഹ്യദം ഊട്ടിയുപ്പിക്കുമെന്ന് ഔദ്യോഗിക വാർത്ത കുറിപ്പിൽ പറയുന്നു ഒരു എണ്ണ കപ്പൽ റാഞ്ചിക്കൊണ്ടു പോവുകയും പിന്നീട്ട് ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാഹസികമായി അതിലുള്ളവരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തു മാറ്റുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി

ഏകദേശം എട്ടു മുതൽ ഒൻപത് ഡോളർ വരെ നിക്ഷേപം ആണ്

ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ അറബിക്കടലിന്റെ തീരദേശ പട്ടണമായ ഗ്വാദറിലും പുതിയ ശുദ്ധീകരണശാല സ്ഥാപിക്കും മന്ത്രിസഭ യോഗത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അധ്യക്ഷനായിരുന്നു

ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്തൃയ്ക്ക് ആദ്യം തന്നെ ഓപ്പണർ കെ

രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പൃഥി ഷായും ചേതേശ്വർ പൂജാരയും ചേർന്ന് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റുകയായിരുന്നു രണ്ടാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കുമ്പോൾ കോഹ്ലിയും ഋഷഭുമാണ് ക്രീസിലുണ്ടാവുക

വിദേശ കാര്യമന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം